ദിനത്തിലും വാദപ്രതിവാദങ്ങൾ എൽ ഡി എഫ് ചരിത്ര്വിജയം സ്വന്തമാക്കുമെന്ന് ന് മുഖ്യമന്ത്രി പിണറീയ് വിജയൻ യു ഡി എഫ് ഐതിഹാസിക വിജയം നേടുമെന്ന് രമേശ് ചെന്നിത്തല എൻഡിഎ ഉജ്ജല മുന്നേറ്റം നടത്തുമെന്ന് കെ സുരേന്ദ്രൻ

തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു അസമിലും പശ്ചിമ ബംഗാളിലും മൂന്നാം ഘട്ട വോട്ടെടുപ്പ് തുടരുന്നു

ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പോളിംഗ് കോഴിക്കോട് ജില്ലയിലും ഏറ്റവും കുറവ് ഇടുക്കി ജില്ലയിലുമാണ് മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ടനിരയാണ് ദൃശ്യമാകുന്നത് ഗ്രാമപ്രദേശങ്ങളിലും വോട്ടർമാരുടെ മികച്ച പങ്കാളിത്തമുണ്ട്

ഇത്തവണ ഇത് ഭേദിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ

കോവിഡ് പ്രോട്ടോകോൾ ക്ർശനമായി പാലിച്ച് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച ്പോളിങ് വൈകിട്ട് ഏഴ് മണി വരെ തുടരും നക്സൽ ബാധിത പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഒൻപത് മണ്ഡലങ്ങളിൽ വൈകിട്ട് ആറ് മണി വരെയാണ് വോട്ടെടുപ്പ് ഇരട്ടവോട്ടുള്ളവർ സത്യവാങ്മൂലം നൽകണം

സുവർണ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി സുവർണ്ണ ചേരുകയാണ്

ഡി

സി അമല ബേസിക് യു

പി സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

കോഴിക്കോട് മുടക്കല്ലൂർ എ

പി സ്കൂളിൽ വോട്ട് ചെയ്തശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

നേമം കഴക്കൂട്ടം മഞ്ചേശ്വരം പാലക്കാട് ധർമ്മടം കൊല്ലം തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം വോട്ടർമാരുടെ വൻനിരയാണ് പോളിങ് ബൂത്തുകളിലുള്ളത് പോളിങ് ദിനത്തിലും നേട്ടം അവകാശപ്പെട്ട് മൂന്ന് മുന്നണികളും രംഗത്തുണ്ട് ആരോപണ പ്രത്യാരോപണങ്ങൾക്കും കുറവില്ല

വാശിയേറിയ പോരാട്ടം നടക്കുന്ന പത്തനംതിട്ടയിൽ രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകളിൽ തിരക്കാണ് മലയോര ജില്ലയായ ഇടുക്കിയിലും ഭേദപ്പെട്ട പോളിംഗ് റിപ്പോർട്ട് ചെയ്യുന്നു

ത്രികോണ മത്സരം നടക്കുന്ന മറ്റൊരു ജില്ലയായ തൃശ്ശൂരിലും വോട്ടർമാർ വൻതോതിൽ പോളിംഗിന് എത്തുന്നു

കോഴിക്കോട് ജില്ലയിൽ മൂന്ന് മുന്നണികളും മുഖാമുഖം വരുന്ന മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള പോളിംഗ് നടക്കുന്നു അതിർത്തി ജില്ലയായ കാസർഗോഡ് മികച്ച പോളിംഗ് ഉങ്കിലും മഞ്ചേശ്വരത്ത് താരതമ്യേന പോളിംഗ് കുറവാണ്

കേരളത്തിനൊപ്പം തമിഴ്നാട്ടിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഇരട്ടവോട്ടു തടയുന്നതിനും പണം ലഹരിവസ്തുക്കൾ എന്നിവ അതിർത്തി കടക്കാതിരിക്കാൻ ജാഗ്രത പു്ലൂർത്തുന്നതിനുമാണ് പരിശോധന ചെക്ക് പോസ്റ്റുകൾ അടുച്ചിട്ടില്ലെങ്കിലും ഇരുസംസ്ഥാനങ്ങളിലേക്കും അതിർത്തി കടക്കുന്നവരുടെ എണ്ണം കുറവാണ് വൈകിട്ട് ഏഴു മണിവ്വരെ ്പരിശോധനകൾ തുടരും

ഓഹരിവിപണി രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം

സ്വർണ്ണവിലയിൽ വർദ്ധന